എം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദേശ പത്രിക സമർപ്പിച്ചു കല്പറ്റയിൽ അദ്ദേഹം റോഡ് ഷോ നടത്തി

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദേശ പത്രിക സമർപ്പിച്ചു പതിനൊന്നര യോടെയാണ് ജില്ലാവരണാധികാരികൂടിയായ ജില്ലാകലക്ടർ മുമ്പാകെ അദ്ദേഹം നാല് സെറ്റ് പത്രികകൾ നൽകിയത്

ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയുടെയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെ യു

എഫ് നേതാക്കളുടെയും സാന്നി ധൃത്തിലാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത് കോഴിക്കോട് നിന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റ എസ്

എംജെ സ്കൂൾ ഗ്രൌണ്ടിലെത്തിയ രാഹുൽ ഗാന്ധി പ്രിയ ങ്കയോടൊപ്പം തുറന്ന ജീപ്പിലാണ് നാമനിർദേശ പത്രിക സമർപ്പി ക്കാനെത്തിയത് വൻ ജനാവലി രാഹുലിനെയും പ്രിയങ്കയെയും കാണാൻ കനത്ത ചൂടിലും റോഡിനിരുവശവും തിങ്ങിക്കൂടിയി രുന്നു പത്രിക സമർപ്പിച്ച ശേഷം പ്രിയങ്കയോടും യു

എഫ് നേതാക്കളോടുമൊപ്പം രാഹുൽ റോഡ് ഷോ നടത്തി

എഫിലെയും കോൺഗ്രസിലെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയശേഷം അദ്ദേഹം കോഴിക്കോട്ട് തിരിച്ചെത്തി നാഗ്പൂരിലേക്ക് പോകും രാവിലെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോഴും രാഹുലിനെ കാണാൻ ജനക്കൂട്ടം കാത്തുനിന്നി രുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ഗാന്ധി അമേ ഠിയെ അപമാനിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു

വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരികളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ജെ

കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് കർഷകർ ഏറ്റവും അധികം തകർന്നുപോയത് വയനാട്ടിലാണ്

മൻമോ ഹൻസിംഗ് തുടക്കം കുറിച്ച ആസിയാൻ കരാറാണ് പ്രതിസന്ധി യുണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജെ പി ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത് രാജ്യത്ത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തെ തകർക്കുന്നതാണ് കോൺഗ്രസിന്റെ നടപടിയെന്നും ഇതിന്റെ തെളിവാണ് രാഹുൽ വയനാട്ടിൽ മത്സ രിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പഴയ കോൺഗ്രസല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് രാഹുൽ രാജ്യം ഭരിക്കുമെന്ന് ഇടതുപാർട്ടികൾ പറഞ്ഞിട്ടില്ല

തെരഞ്ഞെടുപ്പിന് ശേഷം മതേതര ജനാധിപത്യ ബദൽ രൂപപ്പെടുത്തുമെന്നും കാനം വ്യക്തമാക്കി തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും വോട്ടെടുപ്പ് തിയ്യതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി

ഈ ദിവസം പെസഹ വ്യാഴവും തൊട്ടടുത്ത ദിവസം ദുഖവെ ള്ളിയും ആയതിനാൽ വോട്ടെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണ മെന്നാവശ്യപ്പെട്ട് ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് കോടതിയെ സമീപിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ വോട്ടുചെ യ്യണമെന്നും ഹർജിക്കാരെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നേതൃത്വം നൽകുന്ന ബെഞ്ച് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വക്താവ് അമാൻ പവാർ നൽകിയ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരി ഗണിക്കും ചിത്രം റിലീസ് ചെയ്യുന്നതിൽ ഇടപെടണമെന്നാവശ്യ പ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കാൻ രണ്ട് ഹൈക്കോടതി കൾ തയ്യാറായില്ലെന്ന് ഹർജിക്കാരനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എ

ഭരണഘ ടന പ്രകാരം നിർബന്ധിതമായ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിനെ ചിത്രം സ്വാധീനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

എം നരേന്ദ്രമോദി എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് തടയ ണമെന്ന ഹർജികൾ മധ്യപ്രദേശ് ബോംബെ ഹൈക്കോടതികൾ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു

നാളെ സൂക്ഷ്മ പരിശോധന നടക്കും

പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ സുരേന്ദ്രൻ ഇന്ന് വീണ്ടും നാമനിർദേശ പത്രിക സമർപ്പിച്ചു

കോഴിക്കോട് ലോക്സഭാമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരായ ആരോപണത്തിൽ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടി ജില്ലാകലക്ടർ ജില്ലാപൊലീസ് മേധാവി എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഘവ ൻ അഞ്ചുകോടി രൂപ ആവശ്യപ്പെട്ടതായ ഒളിക്യാമറാ ദൃശ്യങ്ങൾ ഒരു ഹിന്ദി ചാനലാണ് പുറത്തുവിട്ടത് ദൃശ്യങ്ങൾ പരിശോധി ക്കുമെന്നും സ്വഭാവഹത്യയ്ക്ക് ശ്രമമുണ്ടായോയെന്നും കുറ്റംതെ ളിഞ്ഞാൽ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് പറഞ്ഞു മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ആരോ പണം രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണെന്ന് മുസ്തിംലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അഞ്ചുകോടി രൂപ ആവശ്യപ്പെ ട്ടതായി ഒരു ഹിന്ദി ചാനൽ പുറത്തുവിട്ട ഒളിക്യാമറ ദൃശ്യം സംബ ന്ധിച്ച് കോഴിക്കോട്ട് പ്രതികരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കു ട്ടി

ഫെബ്രുവരി ഏഴിന് റിപ്പോ നിരക്ക് ആറര ശതമാനത്തിൽ നിന്ന് ആറേകാൽ ശതമാനമായും കുറച്ചിരുന്നു ബാങ്കുകളുടെ കിട്ടാക്കടം തിരിച്ചടവിന് പുതിയ നടപടി ക്രമ ങ്ങൾ രൂപീകരിക്കുമെന്ന് നിതി ആയോഗ് സി

നിഷ്ക്രിയ ആസ്തികളുടെ കാര്യത്തിൽ പുതിയ നയം രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു തിരിച്ചട വിന്റെ കാര്യത്തിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കേണ്ടത് ദീർഘകാല വികസനത്തിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം അറി യിച്ചു

തെരഞ്ഞെ ടുപ്പ് ഹർജി പിൻവലിക്കുന്നതിന്റെ നടപടി ക്രമങ്ങൾ പൂർത്തിയാ യിട്ടില്ലെന്ന ബി ജെ പി നേതാവും സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചത്

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈ സേഴ്സ് ഹൈദരാബാദിനെ നേരിടും രാത്രി എട്ടിന് ന്യൂഡൽഹി യിലാണ് മത്സരം സംസ്ഥാനത്തെ പ്രളയം സംബന്ധിച്ച് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് നിരർത്ഥകമാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

ഇക്കാര്യത്തിൽ ഗവൺമെന്റ് വാദമാണ് ശരി യെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നും കോടി യേരി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു സംസ്ഥാനത്ത് ശരാശരി താപനിലയിൽ വർധനയുണ്ടാകു മെന്ന കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും തുടരും ആലപ്പുഴയിൽ ഉയർന്ന താപനിലയിൽ മൂന്നുമുതൽ നാലു ഡിഗ്രിവരെ വർധനയുണ്ടാകും വയനാട് ഒഴികെ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്നുവരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരും

കാസർകോട് ജില്ലയിൽ ഇതുവരെ വേനൽമഴ ലഭിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാ ക്കുന്നത്

അടുത്ത ആഴ്ചയോടെ വേനൽമഴ ശക്തിപ്പെടുമെന്നാണ് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം കണ്ണൂരിൽ കനത്ത ചൂട് തുടരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയാണ് മുതിർന്ന സി

എം നേതാവും മുൻ കണ്ണൂർ ജില്ലാസെ ക്രട്ടേറിയറ്റ് അംഗവുമായ പുഞ്ചയിൽ നാണു നിര്യാതനായി

അസുഖത്തെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം പയ്യാ മ്പലത്ത് നടക്കും പുഞ്ചയിൽ നാണുവിന്റെ നിര്യാണത്തിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു തൃശൂർ ചിയാരത്ത് പെൺകുട്ടിയെ പെട്രോളൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി ചിയാരം സ്വദേശിനി നീതുവാണ് മരി ച്ചത്

സംഭവത്തിൽ വടക്കേക്കാട് സ്വദേശി നിധീഷിനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ലുധിയാന ആദായനികുതി വകുപ്പ് അധി കൃതർ അറിയിച്ചു ജലന്ധർ രൂപതക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദയ എന്ന കമ്പനിയുടെ പണമിടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് ഫാ ആന്റണി അധികൃതർക്ക് നൽകിയത്

എസ്

സി കേന്ദ്രീകൃത മൂല്യനിർണയം ആരംഭിച്ചു മൂന്ന് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണയം

ഇന്ത്യയിലെ തെരുവ് നായ്ക്കളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ നിലവിലെ ഇൻജക്ഷനേക്കാൾ മൂന്നുമടങ്ങ് ഇതിന് ശക്തിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി